രണ്ട് ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്

സജ്ജമെന്നും ആശങ്കവേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിൽ നീർൊഴുക്ക് ശക്തം

നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം പുനഃപ്തീശോധിക്കണമെന്ന് ഇന്ത്യ

ജമ്മൂ കാശ്മീരിൽ കനത്ത സൂരക്ഷ തുടരുന്നു ജമ്മൂവിലും ലഡാക്കിലും ജന ജീവിതം സാധാരണ നിലയിലേക്ക്

കൃഷികാർക്ക് പെൻഷൻ നൽകുന്ന കിസാൻ മാൻധൻ കേന്ദ്ര പദ്ധതിയ്ക്ക് തുടക്കം കുറിച്ചു

ഏഴു ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

മഴ കെടുതികളെ ്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ നേതൃത്വത്തിൽ ് ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു യോഗത്തിൽ കേർളം കർണ്ണാടകം ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മഴ കെടുതികളെ കുറിച്ച് പ്രത്യേകം ചർച്ച നടത്തികൃ ദ്ദേശീയ ദുരന്ത പ്രതികരണ സേന ദേശീയ ദുരന്ത നിവാരണ് പൂർത്തോറിട്ടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്നിവയിലെ ്ട്രുഉദ്യോഗസ്ഥ സംഘമാണ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംബന്ധിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി തന്റെ മണ്ഡലമായ വയനാട് ഉൾപ്പെടെ കേരളത്തിലെ പ്രളയ ബാധിത പ്രദേശങ്ങൾക്ക് സഹായം ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു

കർണാടകത്തിലും പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു വടക്കൻ കർണാടകത്തിലെ പ്രളയ ബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി ബി എസ് യദൂരപ്പ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്

നർമദാ നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ തമാസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഉത്തരാഖണ്ഡിൽ തോരാതെ പെയ്യുന്ന മഴയിൽ രണ്ടു പേർ മരിച്ചു മൂന്ന് പേരെ കാണാതായി

തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അണക്കെട്ടുകളിലെ ജലനിരപ്പ് നിരീക്ഷിച്ചുവരികയാണ് അതിതീവ്ര മഴ തുടർന്നാൽ വലിയ ഡാമുകൾ തുറക്കോണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ജലകമ്മീഷന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിലെ നേവൽബേസ് വിമാനത്താവളം പ്രവർത്തനസജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൂടുതൽ സർവ്വീസുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മലയോര മേഖലകളിൽ പൂർണമായും വിനോദസഞ്ചാരം ഒഴിവാക്കണം ആലപ്പുഴ പുന്നമടകായലിൽ നാളെ നടത്താനിരുന്ന നെഹ്റുട്രോഫി ജലോത്സവം മാറ്റിവച്ചു ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ്അതിതീവ്ര മഴയ്ക്ക് സാധൃതയുള്ളത് പത്തനംതിട്ട ് ആലപ്പുഴ കോട്ടയം തൃശൂർ കാസർകോഡ് എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

റോഡുകളും ചെറു പാലങ്ങളും തകർന്നതും വെള്ളം കയറിയതും കാരണം ബസുകൾ ഓടുന്നില്ല

എസ് ആർ ടി സി മാനന്തവാദി ഡിപ്പോയിൽ നിന്ന് സർവീസ് പൂർണ്ണമായും നിലച്ചു

ഇരു രാജൃങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തരം താഴ്ത്താനും സംഝോത എക്സ്പ്രസ് ട്രെയിൻ സർവ്വീസ് നിർത്തി വെയ്ക്കാനുമുള്ള തീരുമാനങ്ങൾ പാകിസ്ഥാൻ ഏകപക്ഷീയമായാണ് സ്വീകരിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ ഇന്ത്യ അയൽരാജ്യത്തോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിന്റെ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും മറ്റു രാജ്യങ്ങളുട്ടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുണമെന്നും ശ്രീ രവീഷ് കുമാർ ആവശ്യപ്പെട്ടു പാക്കിസ്മാനിലെ വ്യോമമേഖല അടച്ചിട്ടില്ലെന്നും യാത്രാമാർഗ്ഗ പ്പുനഃക്രമീകരണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹ് അറീയിച്ചു

ലഡാക്ക് മേഖല സാധാരണ നിലയിലാണ് സ്കൂളുകളും ഓഫീസുകളും മറ്റു കച്ചവടസ്ഥാപനങ്ങളും ഈ മേഖലയിൽ സാധാരണ നിലയിലെത്തി

ഹജ്ജ്തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്ക് സൌകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് ഗവർണർ സത്യപാൽമാലിക് അറിയിച്ചു

പ്രധാനമന്ത്രിയുടെ ആദ്യ നൂറ് ദിന ലക്ഷ്യത്തിലുൾപ്പെട്ട പദ്ധതി പ്രകാരം ചെറുതും ഇടത്തരവുമായ കൃഷിക്കാർക്ക് വാർദ്ധകൃകാല പെൻഷൻ ലഭ്യമാക്കും

കോൺഗ്രസിന് ശേഷം പ്രതിപക്ഷത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് ഡി എം കെ

കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം പിടിച്ചെടുത്തതിനെതുടർന്ന് വെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു